തിത്ലി ചുഴലിക്കാറ്റ് മൂന്നു ലക്ഷത്തോളം പേരെ സുരക്ഷിത സ്ഥാനത്തേയ്ക്ക് മാറ്റി

വിഭാഗത്തിൽ ഇന്ത്യയുടെ സൌരഭ് ചൌധരിക്ക് സുവർണനേട്ടം

താജിക്കിസ്ഥാനിലെ ദുഷൻബയിലാണ് രണ്ട് ദിവസത്തെ സമ്മേളനം നടക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ബെലാറസ് ഇറാൻ മംഗോളിയ എന്നീ രാജ്യങ്ങളുടെ കൂടി സഹക രണം ഉറപ്പിച്ചു കൊണ്ട് വികസന വഴിയിൽ മുന്നേറാൻ ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന അവസരം കൂടിയാണിത് കിർഗിസ്ഥാനെ യോഗത്തിന്റെ പ്രധാന ചുമതല ഏൽപ്പിച്ചതിന് ശേഷമുളള ആദ്യ കൂടിക്കാഴ്ചയാണിത് സംഘടനയുടെ പ്രവർത്തനങ്ങൾ വികസിക്കു ന്നതിനെക്കുറിച്ചു അന്താരാഷ്ട്ര പ്രാദേശിക പ്രശ്നങ്ങളെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും

ഇതുവരെയും ആളപായമൊന്നും റിപ്പോർട്ട്ചെയ്തിട്ടില്ല ആന്ധ്രാ പ്രദേശിലെ അതിർത്തി ജില്ലയായ ശ്രീക്കാകുളത്തും തിത്ലി നാശം വിതച്ചിട്ടുണ്ട്

വോയ്സ് സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ മുൻ കരുതലെന്ന നിലയിൽ മൂന്ന് ലക്ഷത്തോളം ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേയ്ക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നവീൻ പട് നായിക് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അതേ സമയം ദേശീയ ദുരന്ത പ്രതികരണ സേന ഇതിനകം തന്നെ സർവ്വ സന്നാഹങ്ങളുമായി രംഗത്തുണ്ട്

കര നാവിക തീരദേശ സേനകൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചുഴലിക്കാറ്റ് കണക്കിലെടുത്ത് തെക്കൻ മേഖലയിലേയ്ക്കുള്ള ട്രെയിൻ സർവ്വീസുകൾ പുനഃക്രമീകരിക്കുകയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഗോപാൽപൂരിനും ബ്രഹ്മാപൂരിനും ഇടയ്ക്ക് പലയിടങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്

ഭുവനേശ്വറിൽ ഏതാനും വിമാന സർവ്വീസുകളും നിർത്തലാക്കിയിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അസാമിലെ ചില ഗൂർഖ വിഭാഗങ്ങളെ വിദേശികളുടെ പട്ടിക യിൽപ്പെടുത്തിയെന്നാരോപിച്ച് ഓൾ അസാം ഗൂർഖ വിദ്യാർത്ഥി യൂ ണിയൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗിന് നിവേദനം നൽകിയിരുന്നു ഇന്ത്യൻ പൌരത്വം നേടുന്നതിൽ ഗൂർഖ വിഭാഗങ്ങൾ നേരിടുന്ന തടസങ്ങൾ സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാ നത്തെ ഔദ്യോഗികമായി അറിയിച്ചു കര മാർഗമോ വ്യോമ മാർഗമോ ഇന്ത്യയിലെത്തിയ നേപ്പാളി പൌരത്വമുളള ഗൂർഖകൾപാസ്പോർട്ടോ വിസയോ ഇല്ലാതെ അതിർത്തി കടന്ന ഗൂർഖകൾ എന്നിവർക്ക് ആവശ്യമായ രേഖകൾ ഉണ്ടെങ്കിൽ അവരെ നിയമ വിരുദ്ധ അഭ്യാർത്ഥികളായി കണക്കാക്കി ല്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അറിയ്ടിച്ചു

കാന്ത് ഇത്തരത്തിൽ പ്രതികരിച്ചത് വിവിധ മേഖലകളിലെ ആഗോള വെല്ലുവിളികൾ നേരിടാൻ നൂതന തൊഴിൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്ക്കരണത്തിന്റെ ആവശ്യവും ശ്രീ

ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ളിൽ കണ്ടുകെട്ടിയ വസ്തുവകകൾ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ജസ്റ്റിസ് യു

ലളിത് ജസ്റ്റിസ് ഡി

ചന്ദ്രചൂഡ് എന്നിവരടങ്ങിയ ബഞ്ചിന്റെ ഉത്തരവനുസരിച്ചാണ് ഗ്രൂപ്പിന്റെ അറിയിപ്പ് കമ്പനിയുടെ രേഖകളുടെ ഓഡിറ്റിംഗ് സംബന്ധിച്ച് രവി ഭാട്ടിയ പവൻകുമാർ എന്നിവർ ഉൾപ്പെട്ട രണ്ടംഗ ഫോറൻസിക് ഓഡിറ്റർമാരുടെ സേവനവും കോടതി തേടിയിട്ടുണ്ട്

ഇരു രാജ്യ ങ്ങളും തമ്മിൽ പ്രതിരോധവും സൂരക്ഷയും കൂടുതൽ ശക്തമാക്കുന്ന തിന്റെ ഭാഗമായാണ് സന്ദർശനം ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ളോറൻസ് പാർലിയുമായി ശ്രീമതി നിർമ്മല സീതാരാമൻ കൂടി ക്കാഴ്ച നടത്തും

ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയും സംസ്ഥാന ഗവൺമെൻറും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതോടെ മാജുലി ദ്ധീപിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും മുഖ്യമന്ത്രി സർബാനാന്ദ സോനോവാൾ റോ റോ സർവ്വീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും

അതേ സമയം മാധ്യമ ശ്രദ്ധ നേടുന്നതിനാണ് ഈ നടപടിയെന്നും ഇത് നിയമപരമായി നിലനിൽക്കില്ലെന്നും കാർത്തി ചിദംബരം പ്രതികരിച്ചു

ക്യാബിനറ്റിന്റെ നിയമ കമ്മിറ്റി മേത്തയുടെ നിയമനം അംഗീകരിച്ചിട്ടുണ്ട്

നിലവിൽ അഡീഷണൽ സോളസിറ്റർ ജനറലാണ് മേത്ത കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ രജ്ഞിത് കുമാർ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു ഔദ്യോഗിക പദവി

ഇപ്പോഴത്തെ സമരത്തെ കാര്യമാക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ ദേവസ്വംമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേയ്ക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി

രാജ്യത്തെ ഗ്രാമങ്ങളുടെ ഉന്നമനത്തിനും കഠിനാധാനികളായ് ഇന്ത്യൻ കർഷകർക്കും വേണ്ടി അക്ഷീണം പ്രയത്നിച്ച വ്യക്തിയാണ് ദേശ് മുഖ് എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ സംഘടനാ പാടവത്തെയും പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു

പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിലാണ് സ്വർണ്ണം നേടിയത് ഇന്ത്യയുടെ മൂന്നാമത്തെ സ്വർണ്ണമാണിത്

ഇതോടെ ഇന്ത്യയുടെ മെഡൽ നേട്ടം ആറായി

ന്യൂഡൽഹിയിൽ സി

ന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളൂടെ സമാപനസമ്മേളനത്തെ അഭിസംബോധന ചെയ്യു കയായിരുന്നു അദ്ദേഹം പുതിയ കാർഗോ നയം വ്യോമയാന മേഖല യുടെയും രാജ്യത്തെ സമ്പദ് വൃവസ്ഥയുടെയും വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു

അന്താരാഷ്ട്ര നിരീക്ഷകരുടെ സുപ്രധാനമായ ഒരു ആവശ്യമാണ് ഇതോടെ നടപ്പാക്കിയിരിക്കുന്നത്

എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് ഇസ്താംബൂളിലെ സൌദി കോൺസുലേറ്റിൽ പ്രവേശിച്ചശേഷം ഈമാസം രണ്ടാം തീയതി മുതലാണ് ഖ്ഷ്യോഗ്ഗിയെ ഇസ്താംബൂളിൽ നിന്ന് കാണാതായത്